പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നാളെ കേരളത്തിൽ നിരവധി വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും

മുന്നണികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുവനന്തപുരത്ത് എത്തി

ഇന്ന് ചെന്നൈയിൽ തുടക്കമാവും

എസ് എല്ലിൽ ഹൈദരാബാദിനെതിരെ ഈസ്റ്റ് ബംഗാളിന് സമനില

കൊച്ചിയിൽ ബി

സി എല്ലിന്റെ പ്രൊപിലീൻ ഡെറിവേറ്റീവ് പെട്രോ കെമിക്കൽ പദ്ധതി പ്രധാനമന്ത്രി രാജൃത്തിന് സമർപ്പിക്കും വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും

കൊച്ചി ്തുറമുഖത്ത് അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ സാഗരിക പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ മറൈൻ എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും കൊച്ചി തുറമുഖത്ത് ദക്ഷിണ കൽക്കരി ബെർത്തിന്റെ പുനർനിർമാണത്തിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നടത്തും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

യഥാർത്ഥ നിയന്ത്രണരേഖ പാലിക്കപ്പെടുമെന്നും ഏകപക്ഷീയമായ മാറ്റങ്ങൾ വരുത്തില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന വൃക്തമാക്കുന്നു കിഴക്കൻ ലഡാക്കിൽ പോങ്ങിയാങ്ങിലെ സൈനിക പിൻമാറ്റം സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിലും മറ്റ് ചില കേന്ദ്രങ്ങളിലും നടത്തുന്ന തെറ്റായ പ്രചരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രാലയം വാർത്താക്കുറിപ്പ് ഇറക്കിയത് പാർലമെന്റിന്റെ ഇരുസഭകളിലും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങ്ങ് ഇക്കാര്യം വൃക്തമാക്കിയിട്ടുള്ളതാണ്

രാജ്യസഭയിൽ ഇന്നലെ ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപ്പടി പറയുകയായിരുന്നു ധനമന്ത്രി ഒരു റിപ്പോർട്ട്

ആത്മനിർഭർ ഭാരതിലേക്കുളള പ്രധാന ചുവട് വയ്പ്പാണ് കേന്ദ്ര ബജറ്റെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മഹാമാരി മൂലം പ്രതിസന്ധിയിലായവർക്ക് അടിയന്തര ആശ്വാസമെത്തിക്കാൻ ബജറ്റിലൂടെ ഗവൺമെന്റിന് കഴിയും ഹ്രസ്വകാല പരിഹാരങ്ങൾക്കൊപ്പം ദീർഘകാല സുസ്ഥിര വളർച്ചയും സർക്കാർ ലക്ഷ്യമിടുന്നതായി ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി പാവപ്പെട്ടവരെ അഗവണിക്കുന്ന ബജറ്റാണെന്ന പ്രതിപക്ഷ വിമർശനത്തിന് മറുപടിയായി സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികൾ ധനമന്ത്രി എടുത്തു പറഞ്ഞു

കോവിഡ് പ്രതിസന്ധിയിലായ പാവപ്പെട്ടവർക്ക് പി എം

ധനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തെ തുടർന്ന് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം സമാപിച്ചു

പി സഞ്ജയ് ജയ്സ്വാൾ ലോക്സഭയിൽ അവകാശ ലംഘന നോട്ടീസ് നൽകി സ്ട്യിൽ രാഹുൽഗാന്ധി എല്ലാവരോടും എഴുന്നേൽക്കാനും നിശ്ശബ്ദത് പാലിക്കാനും ആവശ്യപ്പെട്ടു എന്നാരോപിച്ചാണ് നോട്ടീസ്സ് നൽകിയത് രാഹുൽഗാന്ധിയുടെ നടപടി സഭയുടെ അന്തസിന് ചേരാത്തതാണെന്ന് ബിജെപി എം

എട്ടു കോടി ഏഴ് ലക്ഷത്തിലധികം പേർ രോഗമുക്തി നേടി

മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുശീൽ ചന്ദ്ര രാജീവ് കുമാർ എന്നിവരും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട് ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ സംഘം ഇന്ന് രാവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാംമീണയുമായും പൊലീസ് നോഡൽ ഓഫീസർമായും കൂടിക്കാഴ്ച നടത്തും

വൈകിട്ടോടെ സുരക്ഷാമുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായും എസ്പിമാരുമായും കൂടിക്കാഴ്ച നടത്തും

വൈകിട്ട് ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയശേഷം കമ്മീഷൻ മാധ്യങ്ങളോടും സംസാരിക്കും

കൽപ്പറ്റയിലെ പരിപാടിയിൽ പങ്കെടുത്തശേഷം വിമാനത്താവളത്തിലേക്കു മടങ്ങവെയാണ് സംഭവമെന്ന് സുമീത്കുമാർ സമൂഹമാധ്യമത്തിൽ കീറ്റിച്ചിട്ടുണ്ട് കൊണ്ടോട്ടി പൊലീസിൽ പരാതി നീൽകി

സർക്കാർരിൻ്റെ പ്രവർത്തനങ്ങൾ ജനോപകാരപ്രദമായിരുന്നുവെന്ന് സി

ഐ

തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ തുടർ ഭരണം ഉറപ്പിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു മുമ്പ് മൂന്ന് തവണ മത്സരിച്ചവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് സംഘടന ചുമതലയുള്ളവർ മത്സരിക്കുന്നെങ്കിൽ ചുമതല മാറ്റിവയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം ആരംഭിച്ചിട്ടില്ലെന്നും ശ്രീ കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി

നാല് മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ മത്സരം ഇന്ത്യ പരാജപ്പെട്ടിരുന്നു

എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ഹൈദരാബാദിന് സമനില

എന്നാൽ ഇഞ്ചുറി ടൈമിൽ അരിഡെയ്ട്ൻ സ്ന്റാന നേടിയ ഗോളിലൂടെ ഹൈദരാബാദ് സമനില് ന്റേടുകയായിരുന്നു ഇന്ന് ചെന്നൈ എഫ്

ബഹുസ്വര സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന റേഡിയോ ആഗോളതലത്തിൽ ഏറ്റവുമധികം സ്വാധീനമുള്ള മാധ്യമമാണ് ഈ വർഷമാണ് ഐക്യരാഷ്ട്ര പൊതുസഭ ലോക റേഡിയോ ദിനത്തെ അന്താരാഷ്ട്ര ദിനമായി അംഗീകരിച്ചത്